സംസ്ഥാനത്ത് കനത്തമഴ തുടരുന്നു കണ്ണൂരിലും റെഡ് അലർട്ട്

രാഷ്ട്ര പതി രാംനാഥ്കോവിന്ദ് ഐവിട്ട് രാഷ്ട്രത്തെ അഭിസംബോ ധന ചെയ്യും

കെപിസിസി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ അന്തരി നും ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപ നഷ്ട പരിഹാരം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങുന്നതിന് ആറ് ലക്ഷം രൂപയും വീടു വെയ്ക്കുന്നതിന് നാല് ലക്ഷം രൂപയും ഉൾപ്പെടെ പത്ത്ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രിസഭായോഗത്തിന്ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താസ മ്മേളനത്തിൽ അറിയിച്ചു പ്രളയബാധിതർക്ക് കഴിഞ്ഞവർഷം നൽകിയതുപോലെ പതിനായിരം രൂപ സഹായധനം കൂടുതൽ പരി ശോധനകൾക്ക് ശേഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പ്രളയദുരിതം കണക്കിലെടുത്ത് അർഹമായ വില്ലേജുകളെ കാലവർഷക്കെടുതിബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കും

പ്രകൃതിക്ഷോഭത്തിൽ ഭാഗികമായോ പൂർണ്മായോ തകർച്ച നേരിട്ട വീടുകളിലെ കുടുംബങ്ങളെയും പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി വീട് വിട്ട് ഗവൺമെന്റ് അംഗീകൃത കൃാമ്പുകളിൽ താമസിച്ചവരേയും ദുരന്തബാധിത കൂടുംബമായി കണക്കാക്കും വില്ലേജ് ഓഫീസറും അതത് പഞ്ചായത്ത് സെക്രട്ടറിയും പരി ശോധിച്ച് ഇത്തരം വീടുകൾ കണ്ടെത്തും കൃഷി കുടിവെള്ളം ജലസേചനം മത്സ്യകൃഷി എന്നിവ്ക്കുണ്ടായ നാശനഷ്ടത്തിന് കഴിഞ്ഞ പ്രളയകാലത്തെ മാനദ്ണ്ഡം അനുസരിച്ച് പണം അനുവ ദിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൈമാറി നൽകുന്നതിന് പൊതുമേഖല സഹകരണ ബാങ്കുകൾ കമ്മീഷൻ ഈടാക്കരുതെന്ന് സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയോട് ആവശ്യപ്പെടും ദുരിതബാധിതരുടെ അക്കൌണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു പ്രകൃതി ദുരന്തത്തിന്റെ നാശനഷ്ടം സംബന്ധിച്ച് കേന്ദ്ര ഗവ

ഇതിനായി ചീഫ് സെക്രട്ടറി യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സമിതിയെ ചുമതലപ്പെടുത്തി യിട്ടുണ്ട്

ദുരന്ത തീവ്രത വർധിപ്പിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും പിണറായി പറഞ്ഞു കേരള പുനർനിർമാണത്തിന്റെ വ്യാപ്തി വർധിച്ചുവെന്നും അതിനനുസരിച്ച് വിഭവസമാഹരണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു രക്ഷാപ്ര വർത്തനത്തിൽ കേന്ദ്രഗവ ന്റെ സഹായം നല്ല തോതിൽ ലഭിച്ചു വെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

നേരത്തെ കോഴിക്കോട് മലപ്പുറം ജില്ലകലിൽ റെഡ് അലർട്ട് പ്രഖ്യാ പിച്ചിരുന്നു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് നാളെ കോഴി ക്കോട് മലപ്പുറം ജില്ലകലിൽ ഓറഞ്ച് അലർട്ടാണ്

ഉരുൾപൊട്ടലുണ്ടായ മലപ്പുറം കവളപ്പാറയിൽ നാല് മൃതദേഹ ങ്ങൾ കൂടി കണ്ടെടുത്തു

ശക്തമായ മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തെരച്ചി ലിന് തടസ്സമാവുന്നുണ്ട്

ഈ കാലയളവിൽ മത്സൃത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ അറി യിച്ചു

ജില്ലയിൽ മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിലാണ് കലക്ടറുടെ നിർദേശം അട്ടപ്പാടിയടക്കം പാലക്കാട് ജില്ലയുടെ പലഭാഗങ്ങളിലും രാവിലെ മഴ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നു ആളുകൾ വീടുകളിലേക്ക് തിരിച്ചു പോയി തുടങ്ങിയിരുന്നു

നിലവിൽ അട്ടപ്പാടിയിൽ രണ്ടു ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്

മലമ്പുഴ ജലശുദ്ധീകരണ ശാലയിലെ ഡ്യുവൽ മീഡിയ ഫിൽട്രേഷൻ സ്ട്വിധാനം രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കാൻ മന്ത്രി കെ

ഒരു കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് തുക ഉടൻ അനുവദിക്കുമെന്ന് മന്ത്രി പാല്ക്കാട്ട് പറഞ്ഞു

പ്രളയ ദുരിതാശ്ചാസത്തിനും പുനരധിവാസത്തിനുമുള്ള സഹായം ഔദ്യോഗിക സംവിധാനം വഴി നൽകാൻ ശ്രദ്ധിക്ക ണ മെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി

അർഹരായവർക്ക് സഹായം ലഭി ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറ്റഞ്ഞു

തൃശൂർ പൊയ്യ താഴ്വാരം റോഡ് ഇടിയുന്നത് പ്രദേശ വാസി കളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു

കോട്ടയം ജില്ലയിൽ മഴ കനത്തു മീനച്ചിലാറും മണിമലയാറും വീണ്ടും കരകവിഞ്ഞു പാലങ്ങളിൽ വെള്ളം കയറി മുണ്ടക്കയത്ത് ഗതാഗതം തടസപ്പെട്ടു പാലാ ഈരാറ്റുപേട്ട റോഡിലും വെള്ളം കയറി

ഇന്നലെ രാത്രിയായിരുന്നു അപകടം വള്ളത്തിലുണ്ടായി രുന്ന മറ്റ് മൂന്ന് പേർ രക്ഷപ്പെട്ടു ലക്ഷദ്വീപിൽ ഇന്നലെ മുതൽ കനത്ത കാറ്റും മഴയും തുടരു ന്നു

ചില പ്രദേ ശങ്ങളിൽ തെങ്ങുകൾ കടപുഴകി വീഴുകയും തീർം കടലെടുക്കു കയും ചെയ്തതായാണ് റിപ്പോർട്ട് ആളപായം ഇ്തേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ജമ്മുർകശ്മീരിന് പ്രത്യേകപദവി പിൻവലിച്ച വിഷയത്തിൽ പാക്കിസ്ഥാനുമായി പ്രശ്നം സങ്കീർണ്ണമായതിനാൽ അതിർത്തി പ്രദേ ശങ്ങളിൽ കനത്ത സുരക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്വാതന്ത്രൃദിന തലേന്നാളായ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും രാത്രി ഏഴിന് രാഷ്ട്രപതിയുടെ പ്രസംഗം ആകാശവാണിയിലും ദൂരദർശനിലും കേൾക്കാം ആകാശവാണിയുടെ എല്ലാ ചാനലു കളും പ്രസംഗം പ്രക്ഷേപണം ചെയ്യും

മലയാള പരിഭാഷ രാത്രി എട്ടിന് ആകാശവാ ണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും വ്യോമസേന വിംഗ് കമാന്റർ അഭിനന്ദൻ വർധമാന് വീർചക്ര ബഹുമതി സ്കാഡ്രന്റ് ലീഡർ മിന്റി അഗർവാളിനെ യുദ്ധസേവാ മെഡലിനും തെരഞ്ഞെടുത്തു ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ നിർണായക പങ്കുവഹിച്ചതിനാണ് ഇരുവർക്കും ബഹുമതി

ഇതേതുടർന്ന് പാക് പിടിയിലായ അദ്ദേഹത്തെ മാർച്ച് ഒന്നിന് ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് മോചിപ്പിക്കുകയാ യിരുന്നു

സ്വാതന്ത്രൃ ദിനാഘോഷങ്ങ ളിൽ ഹരിതചട്ടം പാലിക്കണമെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി ഇന്ത്യയുടെ രണ്ടാം ചന്ദ്രയാൻ ദൌത്യമായ ചന്ദ്രയാൻ രണ്ട് ചന്ദ്ര നിലേക്ക് നീങ്ങിത്തുടങ്ങി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ചന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കുതിപ്പ് തുടങ്ങിയത്

അടുത്തമാസം ഏഴിനാണ് പേട കത്തിലെ ലാന്റർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങുക കെ പി സി സി ജനറൽ സെക്രട്ടറ പി

കണ്ണൂർ ജില്ലാ കോൺ ഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയും പ്രവർത്തിച്ച രാമകൃഷ്ണൻ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തകനെന്നാണ് അറിയപ്പെടുന്നത് ദീർഘകാലം പടയാളി ദിന പത്രത്തിന്റെ പത്രാധിപരായി രുന്നു ഭൌതികദേഹം കണ്ണൂരിലെ പയ്യാമ്പലം സ്പ്രിംഗ് ഫീൽഡ് ഫ്ലാറ്റിലെത്തിച്ചു

ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായി സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന പോയ കേരളത്തിലെ ഹാജിമാർ ശനിയാഴ്ച മുതൽ നാട്ടിലേക്ക് മടങ്ങും

മലയാളി ഹാജിമാർ പൊതുവെ തൃപ്തരായാണ് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി മടങ്ങുന്നതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി മക്കയിൽ പറഞ്ഞു

ഇന്ന് കേസ് പരിഗണിച്ചു കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദുരഭിമാനുക്കൊല യാണെന്നതിൽ ഇരു ഭാഗത്തിന്റെയും അഭിപ്രായം തേട്ടി കെവിന്റെ കൊലപാതകം ദുരഭിമാനക്കൊല തന്നെയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അപൂർവങ്ങളിൽ അപൂർവമാണ് കേസെന്നും പ്രോസിക്യൂഷന് വാദിച്ചു